ലാൻഡർ വിക്രമിന്റെ ഭ്രമണപഥം മൂാറ്റുന്ന ആദ്യഘട്ടം വിജയകരം

ഗതാഗതത്തിന് സജ്ജമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ്ചെയ്തു

സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വൃക്തമായി

ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു

എസ്

അന്വേഷണം നടത്തണമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

പേടകത്തിൽ നിന്ന് വേർപ്പെട്ട ലാൻഡർ വിക്രമിന്റെ ഭ്രമണപഥം താഴ്ത്തുന്ന ആദ്യഘട്ടം രാവിലെ വിജയകരമായി പൂർത്തിയായി

എസ് ആർ

ഈ ഭ്രമണപഥത്തിൽ നിന്നാണ് ലാൻഡർ ഇൌ മാസം ഏഴിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സുരക്ഷിതമായി ഇാങ്ങുക്

കേരളത്തിന്റെ നഗരഗതാഗത പദ്ധതികൾക്ക് ഉയർന്ന പരിഗണന നൽകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു തുടർന്ന് വിശിഷ്ടാതിഥികൾ മഹാരാജാസ് കോളേജ് സ്റ്റേഷനിൽ നിന്ന് കടവന്ത്ര സ്റ്റേഷൻ വരെ മെട്രോയിൽ യാത്ര ചെയ്തു

വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

എറണാകുളം സൌത്ത് കടവന്ത്ര എറണാകുളം വൈറ്റിലതൈക്കുടം എന്നീ അഞ്ച് മെട്രോ സ്റ്റേഷനുകളാണ് പുതിയ പാതയിലുള്ളത്

എം ആർ എൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്

പേട്ടയിൽ നിന്നും എസ്

ജംഗ്ഷ്നിലേക്കുള്ള പാതയുടെ നിർമ്മാണോദ്ഘാടനവും ജലമെട്രോ പ്പിദ്ധ്തീയുടെ ആദ്യ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർപ്പൂഹിച്ചു

മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

പിണറായി വിദ്യാലയ സംരക്ഷണ യജ്ഞം പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കു കൂടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയവർക്ക് പാരിതോഷികം വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മികച്ച യൂണിവേഴ്സിറ്റികളും കോളേജുകളും നമൂക്ക് വേണം അതിനായി നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ടു തൂട്ങ്ങിയതായും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ മൂന്നു വർഷത്തിനിട്ടയിൽ പൊതുവിദ്യാലയങ്ങളിൽ മൂന്നു ലക്ഷത്തിലേറെ വിദ്യാർഥികൾ പുതുതായി ചേർന്നത് പൊതുവിദ്യാലയ സംരക്ഷണ് ത്രജ്ഞത്തിന്റെ ഭാഗമായുണ്ടായ നല്ല മാറ്റം പൊതുസമൂഹം അംഗീക്ടരിച്ചുവെന്നതിന് തെളിവാണ് പശ്ചാത്തല സൌകര്യത്തിലും അക്കാദമിക മികവിലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ഉയർത്തുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം പ്രൈമറി ക്ലാസുകളിൽ പോലും നല്ല സാങ്കേതിക മാറ്റം കൈവന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

ബാലൻ ഉദ്ഘാടനം പട്ടികവർഗ്ഗക്കാരുടെ സുസ്ഥിരവികസനമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എ

കൊച്ചിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗോത്ര സാംസ്കാരിക സമുച്ചയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി ഇതിന് പുറമെ മൾട്ടി പർപ്പസ് ഹോസ്റ്റലിന്റെയും ഒരു കുടുംബത്തിന് ഒരു ജോലി പദ്ധതിയുടെയും ഉദ്ഘാടനം മന്ത്രി ബാലൻ നിർവ്വഹിച്ചു

എഫ് രാപകൽ സമ്രം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജിദ്ദയിൽനിന്ന് നേരിട്ട് സൌദി എയർലൈൻസ് വിമാനങ്ങളാണ് ഹാജിമാരുമായി മടങ്ങിയെത്തുന്നത് കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കർഷക കർഷകമോർച്ച വന്ദന ദിനവും കർഷക സംഗമവും കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു

ഇടുക്കി ജില്ലയിൽ പ്രത്യേക കാർഷിക പാക്കേജ് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തും എന്ന് കിസാൻ മോർച്ച ദേശീയ സമിതി അംഗം കെ

ഇതുകൂടാതെ ഓൺലൈൻ മൊബൈൽ ആപ്പ് സേവനങ്ങൾ വഴിയും വൈദ്യുതി ബിൽ അടയ്ക്കാവുന്നതാണ്

മുരളീധരൻ ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി സത്യപ്രകാശ ജ്ഞാന തപസ്വിയുടെ ദേഹവിയോഗത്തിൽ കേന്ദ്രസഹമന്ത്രി വി

സമാധി വളരെ വേദനയോടെയാണ് അറിയാൻ കഴിഞ്ഞതെന്ന് കേന്ദ്രമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

മുൻകേന്ദ്രമന്ത്രി ് ആരീഫ് ഖാനെ ഗവർണറായി നിയമിച്ച് രാഷ്ട്രപതി ഞായറാഴ്ചിയ്ക്ണ് വിജ്ഞാപനമിറക്കിയത് ഗവർണർ പി സദാശിവത്തിന്റെ കില്ലാവ്ധി മറ്റന്നാൾ അവസാനിക്കും

ഇതിനായുള്ള ചർച്ചകൾ ഗവൺമെന്റ് തലത്തിൽ നടന്നുവരികയാണ് മേഖലയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥനെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ ഖാദി തൊഴിലാളികളുടെ പുതുക്കിയ മിനിമം വേതനം വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി

ക്ഷീരകർഷക സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയമ പരിരക്ഷയിലൂടെയും കൂട്ടായ പ്രക്ഷോഭത്തിലൂടെയും മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നും മന്ത്രി പറഞ്ഞു

മികച്ച സ്കൂൾ ടീമുകളെ കണ്ടെത്താനുള്ള ടൂർണമെന്റാണ് ഇത് കേരളത്തിനായി കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർസെക്കൻഡറി സ്കൂൾ ടീമാണ് കളത്തിലിറങ്ങുന്നത്